അടിയ ന്തിര സാഹചര്യം ചർച്ച ചെയ്യാൻ ഉച്ചയ്ക്ക്ശേഷം യോഗം ചേരും ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓഗസ്റ്റ് അഞ്ചിന് ആല പ്പുഴ സന്ദർശിക്കും കുട്ടനാട്ടിൽ വനംവകുപ്പ് കുടിവെള്ളം വിതരണം ചെയ്യു മെന്ന് മന്ത്രി കെ

സിക്ക് കിരീടം

ഏഴടികൂടി വെള്ളമുയർന്നാൽ ചെറുതോണി അണക്കെട്ടിന്റെ ഷട്ടർ ഉയർത്തേണ്ടി വരും അടിയന്തിര സാഹചര്യവും ഷട്ടർ തുറക്കേണ്ടി വന്നാൽ ചെയ്യേണ്ട ക്രമീകരണങ്ങളും ചർച്ച ചെയ്യാൻ ഇന്ന് ഉച്ച യ്ക്ക് ഇടുക്കി താലൂക്ക് ഓഫീസിലും വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലും യോഗ്യം ചേരും

എസ്

ജലനിരപ്പ് ഇനിയും ഉയർന്നാൽ ഓഗസ്റ്റ് മൂന്നിനോ നാലിനോ ഷട്ടറുകൾ ഉയർത്തിയേക്കുമെന്നാണ് സൂചന

എസ് ഇ ബി രണ്ടാമത്തെ ജാഗ്രതാ നിർദ്ദേശമായ ഓറഞ്ച് അലർട്ട് നൽകും ആദ്യ ജാഗ്രതാ നിർദ്ദേശം വ്യാഴാഴ്ച നൽകിയിരുന്നു

മുല്ലപ്പെരിയാർ അണക്കെട്ടിലും ജലനിരപ്പ് ഉയരു കയാണ്

മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓഗസ്റ്റ് അഞ്ചിന് ആലപ്പുഴ സന്ദർശിക്കും

വെള്ളമിറങ്ങിയ ശേഷം ഉണ്ടാ കാവുന്ന രോഗങ്ങൾ പ്രതിരോധിക്കാനും ബണ്ടുകൾ പൊട്ടുന്നത് ഒഴിവാക്കാനുമാവശ്യമായ നടപടികൾ യോഗം ചർച്ച ചെയ്യും കുടിവെള്ള ക്ഷാമം രൂക്ഷമായ കുട്ടനാട്ടിൽ വനംവ കുപ്പ് ശുദ്ധജലം വിതരണം ചെയ്യുമെന്ന് മന്ത്രി കെ

പെരിയാർ കൺസർവേഷൻ ഫൌണ്ടേഷൻ ഉല്പാദിപ്പിക്കുന്ന ശബരി ജലം കൂട്ടനാട്ടിൽ വിതരണം ചെയ്യാൻ പെരിയാർ ടൈഗർ റിസർവിന് നിർദ്ദേശം നൽകിയതായി അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു കുട്ടനാട്ടില്ലെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നതിൽ ഗവൺമെന്റിന് കനത്ത വീഴ്ച സംഭവിച്ചതായി പ്രതി പക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി തണ്ണീർമുക്കം ബണ്ട് തുറക്കാത്താണ് വെള്ളപ്പൊക്കം രൂക്ഷമാകാൻ പ്രധാന കാരണം ബണ്ടിന്റെ മൂന്നാം ഘട്ടം മൺചിറയിലെ മണലിന്റെ ഉടമസ്ഥതയെച്ചൊല്ലി പൊളി ക്കാതിരുന്നത് മാപ്പർഹിക്കാത്ത കുറ്റമാണെന്നും പ്രതി പക്ഷ നേതാവ് പറഞ്ഞു ഇത്തരം വീഴ്ചകൾക്ക് മുഖ്യമ ന്ത്രിയും ജലവിഭവ മന്ത്രിയും മറുപടി പറയണമെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണ മെന്നും ചെന്നിത്തല തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു അപ്പർ കുട്ടനാട്ടിലടക്കം വിവിധ മേഖലകളിലുണ്ടായ കാലവർഷക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ പത്തനം തിട്ട ജില്ലയെക്കൂടി പ്രളയബാധിതയായി പ്രഖ്യാപിക്ക ണമെന്ന് ജില്ലാ വികസനസമിതി യോഗം ആവശ്യപ്പെ ട്ടു പത്തനംതിട്ട ജില്ലയിലെ അപ്പർ കുട്ടനാട്ടിലും കോഴ ഞ്ചേരി താലൂക്കിലെ ചിലയിട്ടങ്ങളിലും മഴക്കെടുതി തുട രുകയാണ് കടപ്ര കുറ്റൂർ പെരിങ്ങര നെടുമ്പ്രം പഞ്ചാ യത്തുകളിൽ പല പ്രദേശങ്ങളും ഇപ്പോഴും വെള്ളം കയ റിയ നിലയിലാണ്

പൊന്നാനിയിൽനിന്നും മത്സൃബന്ധനത്തിനുപോയി കടലിൽ കുടുങ്ങിയ തൊഴിലാളികളെ ഫിഷറീസ് വകുപ്പ് രക്ഷപ്പെടുത്തി

ബന്ദിപ്പൂർ വഴി ഏർപ്പെടുത്തിയ രാത്രി യാത്രാനിരോ ധന കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഒരാഴ്ചക്കുള്ളിൽ ചർച്ച നടത്തുമെന്ന് കർണ്ണാടക മുഖ്യ മന്ത്രി എച്ച് ഡി കുമാരസ്വാമി ആലപ്പുഴയിൽ പറഞ്ഞു യാത്രാനിരോധനം തുടരണമെന്നാവശ്യപ്പെട്ട് കടുവ സംര ക്ഷണ അതോറിറ്റി റിപ്പോർട്ട് നൽകിയെങ്കിലും ചർച്ച യിലൂടെ പ്രശ്നപരിഹാരമുണ്ടാക്കാം എന്നാണ് വിശ്വാ സമെന്ന് കുമാരസ്ഥാമി അഭിപ്രായപ്പെട്ടു

സി വേണു ഗോപാൽ എം പി ഏർപ്പെടുത്തിയ പൊൻതൂവൽ വിദ്യാ ഭ്യാസ അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്യുകയാ യിരുന്നു കർണ്ണാടക മുഖ്യമന്ത്രി ഭക്ഷണമില്ലാത്ത ഒരു വീടുപോലും അട്ടപ്പാടിയിൽ ഇനി ഉണ്ടാവില്ലെന്നും വിദൂര ഉൌരുകളിൽപോലും ഭക്ഷ്യധാ ന്യങ്ങൾ എത്തിച്ച് കൊടുക്കുന്ന പദ്ധതികൾ നടപ്പാക്കു മെന്നും മന്ത്രി എ കെ ബാലൻ പറഞ്ഞു അഗളിയിൽ ചെറുധാനൃ ഗ്രാമപദ്ധതിയിൽനിന്ന് തയ്യാറാക്കിയ മൂലൃ വർദ്ധിത ഉല്പന്നങ്ങളുടെ വിപണനം ഉദ്ഘാടനം ചെയ്യു കയായിരുന്നു മന്ത്രി പട്ടികവർഗ്ഗ വനിതകളുടെ വസ്ത്ര നിർമ്മാണ യൂണിറ്റും മന്ത്രി ഉദ്ഘാടനം ചെയ്തു ചട ങ്ങിൽ മന്ത്രി വി

ഗ്രാമങ്ങളിൽ ജോലി ചെയ്യാൻ ലഭിക്കുന്ന അവസരം ഡോക്ടർമാർ പാഴാക്കരുതെന്ന് ഗവർണർ ജസ്റ്റിസ് പി

ഇന്ത്യൻ മെഡിക്കൽ കൌൺസിലിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചായിരിക്കണം ഡോക്ടർമാരുടെ പ്രവർത്തനമെന്നും അദ്ദേഹം നിർദ്ദേ ശിച്ചു

തുടർന്ന് ഇതിന്റെ മലയാള പരിഭാ ഷയും ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും രാത്രി എട്ടിന് പുനഃപ്രക്ഷേപണവും കേൾക്കാം

ടി സിയിൽ ഓഗസ്റ്റ് ഏഴിന് തൊഴിലാളികൾ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി യുടെ നേതൃത്വത്തിൽ സൂചനാ പണിമുട്ടക്ക് നടത്തും ആറാം തീയതി അർദ്ധരാത്രി മുതൽ ഏഴിന് അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക് മാനേജ്മെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് പണിമുടക്കെന്ന് സമിതി അറിയിച്ചു എറണാകുളം പ്രസ് ക്ലബ്ബിന്റെ സുവർണ ജൂബിലി ആഘോഷ ലോഗോ കേന്ദ്രസഹമന്ത്രി അൽഫോൺസ് കണ്ണന്താനം പ്രകാശനം ചെയ്തു പ്രൊഫ

വി തോമസ് എം പിക്ക് മന്ത്രി ലോഗോ കൈമാറി

കേന്ദ്രമന്ത്രി ജെ

തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയും ഡി എം കെ പ്രസി ഡന്റുമായ എം കരുണാനിധി അപകടഘട്ടം തരണം ചെയ്തതായി പാർട്ടി കേന്ദ്രങ്ങൾ ചെന്നൈയിൽ അറി യിച്ചു ആരോഗ്യസ്ഥിതി മോശമായതിനെത്തുടർന്ന് ഇന്നലെ പുലർച്ചെയാണ് കരുണാനിധിയെ ചെന്നൈ കാവേരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കൊച്ചിയിൽ സമാപിച്ച ലാലിഗ് വേൾഡ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ജിറോണ എഫ് സിക്ക് കിരീടം കേരളാ ബ്ലാസ്റ്റേഴ്സിനെ മറു പടിയില്ലാത്ത അഞ്ച് ഗോളിന് തകർത്താണ് ജിറോണ ജേതാക്കളായത്

പുരുഷന്മാരുടെ മാസ്റ്റേഴ്സ് രണ്ട് മൂന്ന് വിഭാഗങ്ങളിൽ കേരളം മുന്നിട്ട് നിൽക്കുകയാണ്

ചാമ്പ്യൻഷിപ്പ് ഇന്ന് സമാപിക്കും വൈകിട്ട് സമാപന സമ്മേ ളനം മന്ത്രി കെ കെ ശൈലജ ഉദ്ഘാടനം ചെയ്യും നെഹ്റുട്രോഫി വള്ളംകളിയുടെ രജിസ്ട്രേഷൻ പൂർത്തിയായി

ആശുപത്രികളിൽ കീമോ തെറാപ്പിക്ക് സൌകര്യമൊരുക്കുമെന്നും അവർ തല ശ്ശേരിയിൽ അറിയിച്ചു കോടിയേരി മലബാർ ക്യാൻസർ സെന്ററിലെ ബ്ലഡ് ബാങ്കിൽ ആധുനിക സംവിധാനങ്ങളും ന്യൂക്ലിക് ആസിഡ് ടെസ്റ്റ് ലാബും ഉദ്ഘാടനം ചെയ്യുക യായിരുന്നു മന്ത്രി കണ്ണൂർ ജില്ലാ ആശുപത്രി വികസന മാസ്റ്റർ പ്ലാൻ പ്രവൃ ത്തികൾ സെപ്തംബറിൽ ആരംഭിക്കുമെന്ന് കണ്ണൂരിൽ ചേർന്ന അവലോകന യോഗത്തിൽ മന്ത്രി അറിയിച്ചു വിദ്യാലയ പരിസരങ്ങളിലെ ലഹരി വസ്തുക്കളുടെ വിൽപ്പന തടയാൻ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾക്ക് മന്ത്രി ടി

സ്കൂളി ന്റെയും കോളേജുകളുടെയും പരിസരത്ത് ലഹരി വിൽക്കുന്ന കടകൾ കണ്ടെത്തിയാൽ പിന്നീട് അവ തുറ ക്കാൻ അനുവദിക്കരുതെന്ന് മന്ത്രി പറഞ്ഞു വ്യാജമദ്യത്തി നെതിരായ പരിശോധനകളും ശക്തമായി തുടരാൻ കണ്ണൂ രിൽ എക്സൈസ് അവലോകനയോഗത്തിൽ ടി പി രാമ കൃഷ്ണൻ ആവശ്യപ്പെട്ടു ഹജ്ജ് യാത്രക്കാർക്കായി മലപ്പുറത്തുനിന്ന് നെടുമ്പാ ശ്ശേരി വിമാനത്താവളത്തിലേക്ക് ദിവസവും രണ്ട് പ്രത്യേക ലോ ഫ്ളോർ ബ്ലസ് സർവ്വീസുകൾ ആരംഭി ക്കും

മണൽ കട്ത്തുന്നതിനിടെ പൊലീസിനെ കണ്ട് പുഴ യിൽ ചാടിയ തവന്നൂർ അതളൂർ സ്വദേശി മൻസൂറിന് വേണ്ടി തെരച്ചിൽ തുടരുന്നു ഇന്നലെ രാവിലെ ചമ്ര വട്ടം പാലത്തിന് സമീപം പൊലീസ് പട്രോളിംഗ് സംഘത്തെ കണ്ടതിനെത്തുടർന്ന് മൻസൂറും സുഹൃത്ത് ഉമർഷാദും പുഴയിലേക്ക് ചാടുകയായിരുന്നു ഉമർഷാദ് നീന്തി രക്ഷപ്പെട്ടു

ഇതിനെതിരായ ഹർജിയിൽ ഒരു മാസത്തിനകം അംഗീ കാരത്തിന് അപേക്ഷിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അടുത്ത ശനിയാഴ്ച കോഴിക്കോട് ഇസ്ലാമിക് സെന്ററിൽ യോഗം ചേരുമെന്ന് സമിതി അറിയിച്ചു സംസ്ഥാനത്ത് ടോഡി ബോർഡ് രൂപീകരണ നടപടി കൾ ആരംഭിച്ചതായും മന്ത്രിടി

കള്ളു ചെത്ത് വൃവസായ സംരക്ഷണത്തിന് ഗവൺമെന്റ് നടപടിയെടുത്തുവരികയാണ് ബോർഡ് രൂപീകരണത്തോടെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് കണ്ണൂരിൽ പാപ്പിനിശ്ശേരി റെയ്ഞ്ച് കള്ളുചെത്തു വ്യവസായ തൊഴിലാളി സഹക രണ സംഘത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി വിശ്വാസം പ്രകടിപ്പിച്ചു